ഏഴാം വട്ട ചർച്ച അടുത്തമാസം നാലിന് കർഷകർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ യുക്തിസഹമായ പരിഹാരം കാണാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി നരേന്ദ്രസിങ് ത്രോമർ

സമയപരിധി കേന്ദ്രസർക്കാർ ജനുവരി പത്തു വരെ നീട്ടി

എഫ്സി ഗോവയ്ക്ക് ജയം

ഇന്നലെ ന്യൂഡൽഹിയിൽ കർഷക സംഘടനകളുമായി ക്ക്ര്ന്ദ്സർക്കാർ ആറാം വട്ട ചർച്ച നടത്തിയിരുന്നു കേന്ദ്രം മന്ത്രിമാരായ നരേന്ദ്രസിങ് തോമർ പിയൂഷ്ഗോയൽ സോം പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ചർച്ചയിൽ പുരോഗതി ഉള്ളതായി കേന്ദ്ര കാർഷിക മന്ത്രി നരേന്ദ്രസിങ് തോമർ വൃക്തമാക്കി കർഷകർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ യുക്തിസഹമായ പരിഹാരം കാണാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു

വായു ഗുണനിലവാരം സംബന്ധിച്ചും വൈദ്യുതി സബ്സിഡിയിലുമാണ് ധാരണയായത് താങ്ങുവില തുടരുമെന്നും താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ വേണമെന്ന ആവശ്യം പ്രതിഷേധക്കാർ മുന്നോട്ടു വയ്ച്ചതായും അദ്ദേഹം പറഞ്ഞു

ഡൽഹിയിലെ അതിശൈതൃത്തിന്റെ പശ്ചാത്തലത്തിൽ വൃദ്ധരേയും സ്ത്രീകളെയും കുട്ടികളെയും വീടുകളിലേക്ക് മടക്കി അയക്കാൻ മന്ത്രി കർഷകരോട് അപേക്ഷിച്ചു

വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചടങ്ങ്

ദ്വ കൂടുതൽ വിവരങ്ങളുമായി ലിഖിത

വിവിധ പദ്ധതികൾ പരിപാടികൾ പരാതികൾ എന്നിവ സംബന്ധിച്ച് ആശയവിനിമയം നടന്നു റെയിൽവേ ഉപരിതല ഗതാഗതമന്ത്രാലയം ഭവനനഗരകാര്യമന്ത്രാലയം എന്നിവയുടെ പദ്ധതികൾ ചർച്ച ചെയ്തു ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ജമ്മുകശ്മീർ പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര ഡൽഹി ഹരിയാന ഗുജറാത്ത് ദാദ്ര നാഗർ ഹവേലി എന്നിവിടങ്ങളിലേക്കുള്ള ഒരു ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് ചർച്ച ചെയ്തത്

പരാതികൾ വേഗത്തിൽ പരിഹരിക്കാൻ പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പദ്ധതികൾ നിശ്ചിതസമയത്ത് തന്നെ പൂർത്തീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

കോവിഡ് ഭീഷണിനിലനിൽക്കുന്ന സ്ട്ഹെചര്യത്തിലാണ് ഇത്

വൃക്തികൾക്ക് ഇന്ന് വരെയാണ് ആദായനികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയപരിധി നേരത്തേ നിശ്ചയിച്ചിരുന്നത്

ഇത് മൂന്നാം തവണയാണ് ആദായനികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകുന്നത്

ചെറുകിട മധ്യനിര നികുതിദായകർക്ക് സ്വയം വിലയിരുത്തി നികുതി നൽകാനുള്ള തീയതിയും നീട്ടി

ന്യൂസ്ഡസ്ക് ആകാശവാണി

ഇന്ന് ആളുകളെ പങ്കെടുപ്പിച്ചുള്ള പൊതുപരിപാടികൾ നടത്താൻ പാടില്ലെന്ന് ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കി എല്ലാ ആഘോഷങ്ങളും രാത്രി പത്ത് മണിക്ക് അവസാനിപ്പിക്കണമെന്നും നിർദേശമുണ്ട് ആഘോഷങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണം മാസ്ക് സാനിറ്റൈസർ സാമൂഹിക അകലം എന്നിവ നിർബന്ധമായും പാലിക്കണമെന്നും ഉത്തരവിലുണ്ട്

ഗോവ തോൽപ്പിച്ചു ഇ്ന്നും നാളെയും മത്സരങ്ങളില്ല

മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷനേതാവിനും പുറമേ ഘടകകക്ഷി നേതാക്കൾക്കു മാത്രമാണ് സംസാരിക്കാൻ അവസരം

പ്രവാസികളും വിദേശകാര്യമന്ത്രാലയവും തമ്മിലുള്ള ആശയവിനിമയവേദിയായിരിക്കും പോർട്ടൽ എന്നും ഇന്ത്യൻ പ്രവാസികൾക്ക് വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടാൻ സാധിക്കുമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

നാഗാലാന്റിൽ സ്ഥിതിഗതികൾ സങ്കീർണ്ണമാണെന്നും സായുധ സേനയുടെ സാന്നിദ്ധ്യം സംസ്ഥാനത്ത് അനിവാരൃമാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു ഈ സാഹചരൃത്തിലാണ് സൈനിക പ്രത്യേക അധികാര നിയമത്തിലെ മൂന്നാം വകുപ്പ് അനുസരിച്ച് നാഗാലാന്റിനെ പ്രശ്നബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്

കോവിഡ് പശ്ചാത്തലത്തിൽ ഹൈബ്രിഡ് മാതൃകയിലാണ് ഇത്തവണത്തെ ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത് കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് മേള നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അനുമതിയുള്ള മാധ്യമപ്രവർത്തകരുടെ എണ്ണം ഇത്തവണ മുൻവർഷങ്ങളേക്കാൾ കുറവായിരിക്കും